എസ് ഇന്ത്യാ തന്ത്രപ്രധാന സഹകരണ വേദിയുടെ മൂന്നാം നേതൃതല സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

ഇന്ത്യ ലോകത്ത് കോവിഡ് മരണസംഖ്യ ഏറ്റവും കുറവായ രാജ്യങ്ങളിലൊന്നെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രാലയം

എസ്

എസ് വാരം പുതിയ വെല്ലുവിളികളിലൂടെയുള്ള യാത്ര എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് സമ്മേളനം വ്യാപാരം നിക്ഷേപം ഊർജ സഹകരണം ആരോഗ്യം സാങ്കേതികവിദൃ എന്നിവയിലുള്ള പങ്കാളിത്തം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും നേരത്തെ അമേരിക്കൻ വൈസ്പ്രസിഡന്റ് കൃഷ്ട് മൈക്ക് പെൻസ് കേന്ദ്രമന്ത്രിമാരായ പിയൂഷ് ഗോയൽ ് എസ്

കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് വോയ്സ് റഷ്യൻ പ്രതിരോധ മന്ത്രി ഷെർജി ഷോയിഗിന്റെ ക്ഷണപ്രകാരമാണ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ് റഷ്യയിലെത്തിയത്

തീവ്രവാദത്തിനെതിരെയുള്ള സി

താത്പര്യമുള്ള വിഷയങ്ങളും റഷ്യൻ പ്രതിരോധ മന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് ശ്രീ രാജ്നാഥ് സിങ് ട്വിറ്ററിൽ കുറിച്ചു

ജയ്ശങ്കറിനേയും റഷ്യ ക്ഷണിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ സിവിൽ സർവീസ് പൂർണ്ണ്തിന്റെ കാര്യക്ഷമത വർധിപ്പിക്കാനും പരിഷ്ക്കള്ണ്ത്തിനും ലക്ഷ്യമിട്ടുള്ള കർമയോഗി മിഷന് ഇന്നലെയ്ട്ടുണ്ട് കേന്ദ്ര മന്ത്രിസഭാ ട്യോഗം അംഗീകാരം നൽകിയത് ് സർക്കാരിന്റെ ഏറ്റവും വലിയ മാനവവിഭവശേഷി പദ്ധതിയ്കുകും കർമയോഗിയെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ തെരെഞ്ഞെടുക്കപ്പെട്ട ്ക്രേന്ദ്ര മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ചിന്തകർ പണ്ഡിതർ എന്നിവരടങ്ങുന്ന മാനവവിഭവശേഷി കൌൺസിൽ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കും സിവിൽ സർവീസ് രംഗത്തിന്റെ പരിഷ്കരണത്തിന് നിർണായകമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ സമിതിയാകും

ഇത് പ്രകാരം ഉർദു കശ്മീരി ദോഗ്രി ഹിന്ദി ഇംഗ്ലീഷ് എന്നീ അഞ്ച് ഭാഷകൾ ജമ്മു കശ്മിരിന്റെ ഔദ്യോഗിക ഭാഷകളാകും കശ്മീരി ദോഗ്രി ഹിന്ദി എന്നിവയെ കശ്മിരിന്റെ ഔദ്യോഗിക ഭാഷകളാക്കുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ സമഭാവന നിലനിർത്താനാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു

ഇതുപ്രകാരം ജപ്പാനിലെ നിസെൻകെൻ കാളിറ്റി ഇവാലൂവേഷൻ സെന്റർ ഇന്ത്യയിൽ പരിശോധനക്ക് നിയോഗിക്കപ്പെടും ഭൂഗർഭശാസ്ത്രം ധാതുവിഭവങ്ങൾ എന്നീ മേഖലയിലെ സഹകരണത്തിന് ഫിൻലൻഡുമായി ധാരണപത്രം ഒപ്പിടാനും മന്ത്രിസഭായോഗം അനുമതി നൽകി

മരണസംഖ്യ ലോകത്ത് ഏറ്റവും കുറവായ രാജൃങ്ങളിലൊന്നാണ് ഇന്തൃയെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രാലയം വൃക്തമാക്കി

അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷത്തോടടുക്കുന്നു

ഇന്ത്യയുടെ പരമാധികാരത്തിനും പ്രതിരോധത്തിനും സുരക്ഷയ്ക്കും ഹാനികരമെന്ന കാരണത്താലാണ് ഇലക്ട്രോണിക്സ് ഐ ടി

ഇന്തൃയുടെ സൈബർ മേഖലയിൽ സുരക്ഷയും പരമാധികാരവും ഉറപ്പുവരുത്തുന്ന ഈ നടപടി ഇന്റർനെറ്റ് മൊബൈൽ ഉപയോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതാണ്

വോയ്സ് സാധ്യമായിടത്തെല്ലാം ആറടി സാമൂഹിക അകലം പാലിക്കണം മാസ്കുകൾ ധരിക്കണം

പൊതുസ്ക്ലങ്ങളിൽ തുപ്പരുത്

പരീക്ഷ നടക്കുമ്പോർ ശാരീരിക അകലം പാലിക്കാൻ സഹായിക്കുന്ന തരത്തിൽ സ്ഥലലഭ്യതയും സീറ്റുകളുടെ ക്രമീകരണവും സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം

പരീക്ഷക്ക് മുമ്പും ശേഷവും കേന്ദ്രങ്ങൾ അണുവിമുക്തമാക്കണമെന്നും മന്ത്രാലയം പുറത്തിറക്കിയ മാനദണ്ഡം വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രോഗലക്ഷണമില്ലാത്തവർക്കു മാത്രമാകും യാത്ര ചെയ്യാൻ അനുമതി

യാത്രക്കാർ സ്റ്റേഷനിൽ തടിച്ചു കൂടാത്ത വിധത്തിൽ ട്രെയിനുകളുടെ സമയക്രമം നിശ്ചയിക്കും

സാമൂഹിക അകലം പാലിക്കുന്നതിനായി സ്റ്റേഷനുകളിലും ട്രെയിനുള്ളിലും യാത്രക്കാർക്കുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് നൽകും യാത്രക്കാർക്കും മെട്രോ ജീവനക്കാർക്കും മാസ്ക് നിർബന്ധമായിരിക്കും

സ്മാർട്ട് കാർഡുകളും ക്യാഷ്ലെസ്സ് പണമിടപാടും പരമാവധി പ്രോത്സാഹിപ്പിക്കാനും നിർദ്ദേശമുണ്ട്

അൺലോക്ക് നാലാംഘട്ടം പ്രകാരം കണ്ടെയ്ൻമെന്റ് സോണ്ടുകളീൽ പൊതു ലോക്ഡൌൺ തുടരും

എല്ലാ കളക്ടർമാരും ജില്ലാ പൊലീസ് മേധാവികളും കോവിഡ് നിർവ്യാപനത്തിന്റെ ഭാഗമായുള്ള ഈ മാർഗനിർദേശങ്ങളും നിയന്ത്രണങ്ങളും നടപ്പാക്കുന്നതായി ഉറപ്പുവരുത്തണമെന്ന് ഉത്തരവിൽ നിർദേശിക്കുന്നു

അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ പരിചരണവും ചികിത്സയും ഉറപ്പുവരുത്തി മരണ നിരക്ക് കുറയ്ക്കുന്നതിന് ഐ

യു ഡോക്ടർമാരുടെ സേവനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ എയിംസിൽ ഇ ഐസിയു സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്

വെള്ളപ്പൊക്കം ഏറ്റവും രൂക്ഷമായി ബാധിച്ച ദർഭംഗ ജില്ലയിൽ ഇന്ന് സംഘം സന്ദർശനം നടത്തുകയും നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും ചെയ്യും